പതിനാറാമൻ ഗുസ്താഫുമായി ഇന്ന് ഉഭയകക്ഷി ചർച്ച നടത്തും

ജനജീവിതം താറുമാറാക്കി

സുനിൽകുമാറിനും സ്വർണം

സ്വീഡൻ രാജാവ് ഗുസ്താഫിന്റെ മൂന്നാം ഇന്ത്യാ സന്ദർശനമാണ് ഇത് സന്ദർശനത്തിനിടെ ദമ്പതികൾ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും കൂടിക്കാഴ്ച നടത്തും സ്വീഡൻ രാജാവിന്റെ നേതൃത്വത്തിലുള്ള ഉന്നത തല പ്രതിനിധി സംഘം ന്യൂഡൽഹിയിലും മുംബെയിലും വൃവസായ പ്രമുഖരുമായും ചർച്ച നടത്തും നിരവധി കരാറുകൾ ഒപ്പുവയ്ക്കാനും സാധൃതയുണ്ട്

പരസ്പര താൽപര്യമുള്ള വിവിധ വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്നാണ് സൂചന

വിശദാംശങ്ങളുമായി ലിഖ്ചിരു വിജിയൻ

ഡിഫ്തീരിയ വില്ലൻചുമ പോളിയോ ടെറ്റനസ് ക്ഷയം അഞ്ചാംപനി മെനിഞ്ചൈറ്റിസ് മഞ്ഞപ്പിത്തം എന്നീരോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ നടപടികളാണ് മിഷൻ ഇന്ദ്രധനുഷിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തെരഞ്ഞെടുത്ത പ്രദേശങ്ങളിൽ ജപ്പാൻ ജ്വരത്തിനെതിരെയുള്ള വാക്സിനും നൽകുന്നുണ്ട്

ഈമാസം മുതൽ അടുത്ത മാർച്ച് വരെയാണ് പദ്ധതി കാലയളവ് ന്യൂസ് ഡെസ്ക് ആകാശവാണി

വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്ര്യധാന നേതാക്കളെല്ലാം പ്രചാരണത്തിൽ സജീവമാണ്

ജെ പി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ ഇന്ന് ചക്രധർപ്പൂരിലും ബഹർഗോറയിലും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി സിംദെഗയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സംബന്ധിക്കും

കശ്മീർ താഴ്വരയിൽ ഒട്ടാകെ ഇവർക്കായുള്ള കായിക ക്ഷമതാ പരിശോധന നടന്നു

കർത്താർപൂർ തീർത്ഥാടകരെ സഹായിക്കാൻ സംസ്ഥാന ്ഗവൺമെന്റ് സ്ഥാപിച്ച സേവാ കേന്ദ്രങ്ങൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മുഖ്യമന്ത്രി അമരീന്ദർ സിങ് നിർദ്ദേശം നൽകി ഇതിൽ വീഴ്ച വരുത്തുന്ന കേന്ദ്രങ്ങൾ സംബന്ധിച്ച് തന്റെ ഓഫീസിനെ നേരിട്ട് അറിയിക്കാമെന്ന് ഛണ്ഡിഗഡിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പറഞ്ഞു

ബാരാമുള്ള ജില്ലയിൽ റാഫിയാബാദ് വനമേഖലയിലുള്ള ഒളിത്താവളമാണ് സംയുക്ത സേനാ നീക്കത്തിലൂടെ തകർത്തത്

തീരദേശ ജില്ലകളായ തിരുവള്ളൂർ തൂത്തുക്കുടി രാമനാഥപൂരം ജില്ലകളിലും ചെങ്കൽപ്പേട്ട് കാഞ്ചീപുരം ഗ്രൂഡലൂർ ചെന്നൈ എന്നിവിടങ്ങളിലും പുതുച്ചേരിയിലും ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടു്

ഇന്നലെ ചെന്നൈയിലും മറ്റ് നിരവധി സ്ഥലങ്ങളിലും ശക്തമായ മഴ പെയ്തു

അറബിക്കടലിൽ ന്യൂനമർദ്ദം തുടരുന്നതിനാൽ ലക്ഷദ്വീപിലെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

അതിനിടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ രൂപംകൊ ന്യൂനമർദത്തെ തുടർന്ന് എറണാകുളം ഇടുക്കി മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ബീച്ചുകളിലേക്കുള്ള വിനോദ സഞ്ചാരം ഒഴിവാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നു

കിഷൻ റഡ്ഡി സംസ്ഥാന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെയും ഇരയുടെ കുടുംബാംഗങ്ങളെയും സന്ദർശിച്ച ശേഷം ന്യൂഡൽഹിയിൽ പാർലമെന്റ് മന്ദിരത്തിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേസിൽ അന്വേഷണം ദ്രുതഗതിയിൽ നടത്താൻ സംസ്ഥാന ഗവൺമെന്റിന് നിർദ്ദേശം നൽകിയിട്ടുന്ന് ശ്രീ

കേന്ദ്രം എന്ത് സഹായവും ചെയ്യാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയ മന്ത്രി സംഭവത്തെ ശക്തമായി അപലപിച്ചു

ഭോപാൽ വിഷവാതക ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവരുടെ സ്മരണയിലാണ് എല്ലാവർഷവും ഡിസംബർ രണ്ടിനുള്ള ദ്ദ്രിനാചരണം കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കാൻ ലോക രാഷ്ട്രങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾ അപര്യാപ്തമാണെന്നും ആഗോള് ത്യാപ്നം ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നതായും യു എർ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു ഇന്ന് പ്സ്പെയിൻ തലസ്ഥാനമായ മാഡ്രിഡിൽ ആരംഭിക്കുന്ന കാലാവസ്കുക് വൃതിയാനം സംബന്ധിച്ച രണ്ടാഴ്ചത്തെ രാജ്യാന്തര സമ്മേളനത്തിന് മുന്നോടിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആഗോള താപനം പിടിച്ച് നിർത്താനുള്ള സാങ്കേതിക പരിജ്ഞാനവും ഉപാധികളും ഉണ്ടായിരുന്നിട്ടും രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ ഇച്ഛാശക്തി കാട്ടുന്നില്ലെന്ന് യു എൻ ജനറൽ സെക്രട്ടറി എടുത്തുപറഞ്ഞു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്

ഇരു രാജൃങ്ങളിലെയും സൈനിക സഹകരണം മെച്ചപ്പെടുത്താനും സൈനിക ശേഷി മെച്ചപ്പെടുത്താനും ആശയങ്ങൾ കൈമാറാനും ലക്ഷ്യമിടുന്നതാണ് വിവിധ സൈനികാഭ്യാസം ഇരു രാജ്യങ്ങളിലെയും സേനകൾ തമ്മിലുള്ള സഹകരണത്തിന് പുത്തൻ ഉണർവ് നൽകുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര രാജൃരക്ഷാ മന്ത്രാലയം അറിയിച്ചു നഗര ഗ്രാമ മേഖലകളിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനുള്ള തന്ത്രങ്ങളും അഭ്യാസ പ്രകടനങ്ങളും മിത്രാശക്തിയിൽ നടക്കും

സീനിയർ ദേശീയ ചാമ്പൂൻഷിപ്പിൽ ഗുർപ്രീതിന്റെ നാലാം വിജയമാണിത്

സർപ്പീസസ് രണ്ടും ഝാർഖണ്ഡ് മൂന്നും സ്ഥാനങ്ങൾ സ്വന്തമാക്കി

രാം സെമി ഫൈനലിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ശനിയാഴ്ച നടന്ന മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം മാലിദ്ധീപിനെ തോൽപ്പിച്ച് ഫൈനലിൽ എത്തിയിരുന്നു നാളെ നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ഇന്തൃൻ വനിതകൾ ആതിഥേയരായ നേപ്പാളിനോട് ഏറ്റുമുട്ടും

നാഗാലാൻഡ് മുഖ്യമന്ത്രി നിഫ്യൂ റിയോ പരിപാടി വേൾഡ് വാർ മ്യൂസിയത്തിൽ ഉദ്ഘാടനം ചെയ്തു